ധനകാരൃ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുമായി ഇന്ന് ആശയവിനിമയം നടത്തും

പ്രതിദിനം അഞ്ച് ലക്ഷം കോവിഡ് പരിശോധന നടത്തുന്നതായി കേന്ദ്ര ആരോഗൃമന്ത്രാലയം

ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു

തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സ്ഥിതി ഗുരുതരം നഗരത്തിൽ ലോക്ഡൌൺ തുടരും

സൃഷ്ടിച്ച ആഘാതം പരിഹരിക്കാൻ സംരംഭകത്വ വികസന പദ്ധതി ആവിഷ്ക്കരിക്കുന്നു

ലോക ജൈവവൈവിദ്ധൃത്തിന്റെ എട്ട് ശതമാനം ഇന്ത്യ നിലനിർത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

വായ്പകളും മറ്റ് ബാങ്കിങ് ്സേവനങ്ങളും കാര്യക്ഷമമായി ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ സാങ്കേതികവിദ്യയിലൂടെയുള്ള സാമ്പത്തിക ശാക്തീകരണം സാമ്പത്തിക മേഖലയുടെ സുസ്ഥിരതയ്ക്കായുള്ള വിവേകപൂർണമായ നടപടികൾ എന്നിവ അജണ്ടയിലുണ്ട് അടിസ്ഥാന സൌകര്യ മേഖല കൃഷി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയിലൂടെയുള്ള പ്രാദേശിക ഉൽപ്പാദനം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുന്ന തരത്തിൽ ക്രമീകരിക്കുന്നതിൽ ബാങ്കിംഗ് മേഖല സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്

മൂന്ന് സിംഗിൾ സീറ്ററും രണ്ട് ഡബിൾ സീറ്റർ വിമാനങ്ങളാണ് ഇന്ന് എത്തുന്നത്

ഫ്രഞ്ച് വ്യോമയാന കമ്പനിയായ ദസ്റ്റോ നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ തിങ്കളാഴ്ച തെക്കൻ ഫ്രാൻസിലെ മെറിഗ്നാക് എയർ ബേസിൽ നിന്ന് പറന്നുയർന്നു

ഇരുരാജ്യങ്ങളിലെയും പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ ധനസഹായത്തോടെയാണ് കോടതി മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്

പ്രതിദിന കോവിഡ് പരിശോധനകളുടെ എണ്ണം അഞ്ച് ലക്ഷത്തിലധികമായതായി ഐ

പ്രധാനമന്ത്രി ന്റർന്ദ്ര്മോദിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ അന്ത്രാഷ്ട്ര യോഗദിനാചരണം പ്രഖ്യാപിച്ചതോടെ ലോകരാ്ഷ്ട്രങ്ങൾ അതീവ താൽപ്പര്യത്തോടെയാണ് ഉയ്ട്രോൾ പരിശീലിക്കുന്നത് പ്രധാനമന്ത്രി കെയേഴ്സ് ഫണ്ടിലേക്ക് പ്ടാര്തീയ യോഗ സൻസ്ഥാൻ നൽകിയ സംഭാവന സ്വീകരിച്ച് സ്ക്സാരിക്കുകയായിരുന്നു അദ്ദേഹം

കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണപ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ വകുപ്പുകൾ എന്നിവ സ്വീകരിച്ചിട്ടുള്ള നൂതന പഠന സങ്കേതങ്ങൾ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നു

മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതി എന്ന പേരിലാണ് ഈ പദ്ധതി ആർുഭിക്കുന്നത്

രോഗബാധിതരെ മുഴുവൻ കണ്ടെത്താനുള്ള സർവെയലൻസ് സംവിധാനമാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ആരോഗൃ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്

ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും പാഴ്സൽ സർവീസുകൾക്കു മാത്രമായി തുറക്കാം കുണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെയുള്ള ഇടങ്ങളിലേക്ക് ഹോം ഡ്ലെലിപ്പിടി അനുവദിക്കും

കടുവ പ്രകൃതിയുടെ വിലയേറിയ രത്നമാണെന്നും അതിന്റെ സാന്നിധ്യം വനം നല്ല നിലയിലാണെന്നതിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു

ഭൌതിക വിഭവങ്ങളുടെ പരിമിതികൾക്കിടയിലും ലോക ജൈവ വൈവിധൃത്തിന്റെ എട്ട് ശതമാനത്തോളം രാജ്യം നിലനിർത്തുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കി

അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി ഓറഞ്ച് അലെർട്ട് പ്രഖ്യാപിച്ചു

ടി യിൽ ഉൽപ്പാദിപ്പിച്ച രാസവളങ്ങളുടെ ഷിപ്പ്മെന്റ് ഇന്നലെ കൊച്ചി തുറമുഖത്ത് ത്ലിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു